രാജ്യത്ത് മൂന്നാംഘട്ട ലോക്ഡൌൺ പ്പാബലൃത്തിൽ ഹോട്ട്സ്പോട്ട് മേഖല ഒഴിക്ടെയുള്ള പ്രദേശങ്ങളിൽ ഗണ്യമായ ഇളവുകൾ

കോവിഡ് പോരാളികൾക്ക് ആദരം നൽകിയ സായുധസേനകളുള്ള നടപടി ശ്ലാഘനീയമെന്ന് രാഷ്ട്രപതിയും ഉപർാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും സേനയുടെ നടപടി ആത്മവിശ്വാസം വർധിപ്പിച്ചതായി ആരോഗ്യപ്രവർത്തകർ

പ്രധാനമന്ത്രി നരേന്ദ്ര മോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉച്ചകോടിയിൽ ക്കെടുക്കും കോവിഡ് മഹാമാരിക്കെതിരെ അംഗരാജ്യങ്ങൾ ഏരുമിച്ച് പ്രവർത്തിക്കേണ്ടത് സംബന്ധിച്ച നിർണ്ണായക തീരുമാനങ്ങൾ ഉച്ചകോടിയിൽ ഉണ്ടാകും

ഐക്യര്യഷ്ട്ര സഭയ്ക്ക് ശേഷം ഏറ്റവുമധികം ലോകരാഷ്ട്രങ്ങൾ അംഗങ്ങളാ്യുള്ള സമിതിയാണ് ചേരിചേരാ പ്രസ്ഥാനം

ഹോട്ട്സ്പോട്ട് ഒഴികെ ഗ്രീൻ ഓറഞ്ച് സോണുകളിൽ അന്തർ ജില്ലാ സഞ്ചാരത്തിന് അനുമതി ലഭിക്കും

ഗ്രീൻ സോണിൽ ആളുകൾ കൂട്ടം കൂടുന്നതൊഴികെ സാധാരണ ജനജീവിതം അനുവദിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു ഘട്ടംഘട്ടമായി ലോക്ഡൌൺ പിൻവലിച്ച് സാധാരണ ജീവിതം തിരിച്ചുകൊണ്ടുവരിക എന്ന സന്ദേശമാണ് ഗവൺമെന്റ് നൽകുന്നത് സമ്പദ്ഘടന പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനൊപ്പം ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുക എന്നതിൽ പ്രതിജ്ഞാബദ്ധമാണെന്ന് ശ്രീ ജാവ്ദേക്കർ പറഞ്ഞു

കോവിഡ് പ്രതിരോധത്തിന് രാഷ്ട്രം ഒറ്റക്കെട്ടാണെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ട്വിറ്ററിൽ അറിയിച്ചു അച്ചടക്കത്തോടും കൂട്ടായ നിശ്ചയദാർഢ്യത്തോടും കൊറോണ വൈറസിനെ കീഴ്പ്പെടുത്താൻ നാമോരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണെന്നു് രാഷ്ട്രപതി പറഞ്ഞു

വർദ്ധിതവീരൃത്തോടെ മഹാമാരിയെ നേരിടാനുള്ള ഊർജം എല്ലാവരി ലും നിറയ്ക്കുന്നതായിരുന്നു പ്രദർശനമെന്ന് കേന്ദ്ര ആരോഗൃമന്ത്രി ഹർഷവർധൻ ട്വീറ്റ് ചെയ്തു

രാജ്യത്തെ ആരോഗ്യ പ്രവർത്തകർ പൊലീസ് തുടങ്ങി കോവിഡ് പ്രതിരോധ രംഗത്തെ മുന്നണിപോരാളികൾക്ക് ആദരമർപ്പിച്ച് കര നാവിക വ്യോമ സേനകൾ രാജ്യമെമ്പാടും ഇന്നലെ വിവിധ പരിപാടികൾ നടത്തിയിരുന്നു

ഇക്കാര്യം വിവരിച്ച് ഡോക്ടർമാർ പ്രതിരോധിപ്പ്സ്നാ മേധാവി ജനറൽ ബിപിൻ റാവത്തിന് കത്തെഴുതി സൈനൃത്തിന്റെ ഫ്ളൈ പാസ്റ്റും പുഷ്പവൃഷ്ടിയും ഊഷ്മളമായ അനുഭവമായിരുന്നുവെന്ന് അസ്സോസിയേഷൻ അറിയിച്ചു തികച്ചും വൃതൃസ്തവും ചരിത്രപരവുമായിരുന്നു സായുധസേനകളുടെ നടപടിയെന്ന് അസ്സോസിയേഷൻ പ്രസിഡന്റ് ഡോ

മുംബൈ ചെന്നൈ അഹമ്മദാബാദ് സൂറത്ത് കൊൽക്കത്ത ആഗ്ര ഹൈദരാബാദ് എന്നിവ ഇതിൽ ഉൾപ്പെടും ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായോ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായോ ബന്ധപ്പെട്ടായിരിക്കും വിദഗ്ധസംഘം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതു വരെ സംഘം അതത് ജില്ലകളിൽ തുടരും

ന്നൂറിലേറെ രാജ്യങ്ങൾക്ക് ഹൈഡ്രോക്സി ക്സോറോകിൻ ഗുളിക ഉൾപ്പെട്ട ഔഷധങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്

കോവിഡ് വ്യാപനം ചെറുക്കുന്നതിനായി അടച്ചിടൽ പൂർണമായും നടപ്പാ ക്കാൻ സഹകരിക്കണമെന്ന് കേന്ദ്ര ആരോഗൃമന്ത്രി ഹർഷവർദ്ധൻ ജനങ്ങളോട് അഭൃർത്ഥിച്ചു

സംസ്ഥാനങ്ങളുടെ പ്രവർത്തനം വിലയിരുത്താൻ ട്രൈഫെഡിന് കീഴിൽ ഓൺലൈൻ മോണിറ്ററിംഗ് സംവിധാനം സജ്ജമാക്കി

അക്കൌണ്ട് നമ്പർ അടിസ്ഥാനത്തിലായിരിക്കും ബാങ്കുകളിൽ നിന്ന് പണംനൽകുക

ജാഗ്രത പാലിക്കുന്നതിന്റെ ഭാഗമായി അടുത്ത രണ്ടാഴ്ച ലോക്ഡൌൺ സംസ്ഥാനത്തൊട്ടാകെ പൂർണ്ണമായി നിലനിൽക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർണ്ണയ പ്രകാരം റാഞ്ചി ജില്ല റെഡ് സോണിലാണ്

ഒന്നിലധികം നിലകളില്ലാത്ത ചെറുകിട ടെക്സ്റ്റയിൽ സ്ഥാപനങ്ങൾ അഞ്ചിൽ താഴെ ജീവനക്കാരുടെ സേവനത്തോടെ തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കും

പിടിച്ചുകൊണ്ടുവരുന്ന മത്സൃത്തിന് ഹാർബറിൽ അടുക്കും മുമ്പു തന്നെ വില നിചയിച്ചിരിക്കണമെന്നും മന്ത്രി പറഞ്ഞു